ഇതുവരെ രോഗം ഭേദമായവരുടെ എണ്ണം ആറര ലക്ഷം കവിഞ്ഞു

സ്വർണ്ണക്കടത്ത് കേസിൽ തിരുവനന്തപുരത്ത് എൻ ഐ തെളിവെടുപ്പ് മൂന്നാംപ്രതി ഫൈസൽ ഫരീദിനെതിരെ ഇന്റർപോൾ നോട്ടീസ്

കൂടുതൽ വിവരങ്ങളുമായി സ്ന്നൽ പി ഭാസ്കർ

ഐ സി എം ആർ ന്റെ പുതിയ പരിശോധനാ നയമനുസരിച്ച് എല്ലാ രജിസ്ട്രേഡ് മെഡിക്കൽ പ്രാക്ടീഷണർമാർക്കും കോവിഡ് പരിശോധനയ്ക്കായി നിർദ്ദേശിക്കാവുന്നതാണ്

സ്വന്തമായി കോവിഡ് കെയർ കേന്ദ്രങ്ങൾ തുറക്കാൻ ആഗ്രഹമുള്ള റസിഡൻഷ്യൽ സൊസൈറ്റികൾ റസിഡൻഷ്യൽ അസോസിയേഷനുകൾ സർക്കാർ ഇതര സംഘടനകൾ എന്നിവർക്ക് വേണ്ട മാർഗ നിർദേശങ്ങൾ കേന്ദ്ര ആരോഗൃകുടുംബക്ഷേമ മന്ത്രാലയം പുറത്തിറക്കിയിട്ടുണ്ട്

പ്രദേശത്ത് വിന്യസിച്ചിട്ടുളള സൈനികരുമായി അദ്ദേഹം ആശയവിനിമയം നടത്തി ഏത് സാഹചര്യങ്ങളെയും നേരിട്ട് രാജ്യത്തെ സംരക്ഷിക്കാൻ കെൽപ്പുളള ധീരരായ സൈനികരെ കുറിച്ച് നാം അഭിമാനിക്കുന്നതായി രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു നേരത്തെ അമർനാഥ് ക്ഷേത്രം സന്ദർശിച്ച ശ്രീ സിംഗ് ഒരു മണിക്കൂർ സമയം അവിടെ ചെലവഴിച്ചു സംയുക്ത സൈനിക മേധാവി ജനറൽ ബിപിൻ റാവത്തും കരസേനാ മേധാവി ജനറൽ എം എം നരവനെയും അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്നു

ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമുത്തിന്റെ പരിധിയിൽ വരുന്ന് എല്ലാ ഗുണഭോക്താക്കൾക്കും ്ട് ഇതീന്റെ പ്രയോജനം ലഭിക്കും ബീഹാർ ഝാർഖണ്ഡ് ഉത്തർപ്പ്ട്ദേശ് മധ്യപ്രദേശ് കർണ്ണാടക എന്നിവ ഉൾപ്പെടെയുളള സംസ്ഥാനങ്ങളിലാണ് നിലവിൽ പദ്ധതി നടപ്പിലാക്കിയിട്ടുളളത് മണിപ്പൂർ നാഗാലാന്റ് ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലും ജമ്മുകശ്മീരിലും ഒരു രാജ്യം ഒരു റേഷൻ കാർഡ് പദ്ധതി പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ചിട്ടുണ്ട് അടുത്ത വർഷം മാർച്ചോടെ എല്ലാ സംസ്ഥാനങ്ങളേയും കേന്ദ്രഭരണ പ്രദേശങ്ങളേയും പദ്ധതിയുടെ കീഴിൽ കൊണ്ടുവരാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് ഈ പദ്ധതിയിൻകീഴിൽ കുടിയേറ്റ ഉപഭോക്താക്കൾക്കും തങ്ങൾക്ക് അനുവദനീയമായ ഭക്ഷ്യധാന്യങ്ങൾ രാജ്യത്തെവിടെയുമുളള ന്യായവില വിൽപ്പനശാലകളിൽ നിന്നും വാങ്ങാൻ കഴിയുന്നതാണ്

കൂടാതെ രണ്ടു മരണവും റിപ്പോർട്ട് ചെയ്തു

എ ഇന്ന് തെളിവെടുപ്പ് നടത്തി കേസിലെ പ്രതികളായ സന്ദീപ് നായരെയും സ്വപ്ന സുരേഷിനെയും കൂട്ടി രണ്ടു സംഘങ്ങളായാണ് എൻ

സെക്രട്ടറിയേറ്റിനു സമീപത്തെ ഫ്ളാറ്റ് കേസിലെ ് പ്രതികൾ ഒത്തുചേർന്നിരുന്ന വിവിധ സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നും അന്വേഷണ സംഘം തെളിവുകൾ ശേഖരിച്ചു അതിനിടെ സ്വർണക്കടത്തുകേസിലെ മൂന്നാംപ്രതി ഫൈസൽ ഫരീദിനെതിരെ ഇന്റർപോൾ നോട്ടീസ് ഇന്ത്യയുടെ അഭ്യർഥന പ്രകാരമാണ് ഇന്റർപോൾ ഫൈസലിനെതിരെ ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത് ഇന്റർപോളിന്റെ സഹായത്തോടെ ഫൈസൽ ഫ്രീദിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായാണ് നടപടി

് അതേസമയം തൃശൂരിലെ ഫൈസലിന്റെ വീട്ടിൽ കസ്റ്റംസ് പരിശോധന നടത്തി

ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണ ഇന്ന് വിവേചനത്തിനെതിരെ പോരാടിയ പ്രമുഖ നേതാവാണ് നെൽസൺ മണ്ടേല

വർണ്ണ വിവേചനം അതിന്റെ മൂർദ്ധന്യാവസ്ഥയിലായിരുന്ന കാലഘട്ടത്തിൽ മണ്ടേല പാർട്ടിയുടെ ഉന്നതസ്ഥാനത്ത് എത്തിച്ചേർന്നു രാജ്യദ്രോഹം ഉൾപ്പെടെയുളള നിരവധി കുറ്റങ്ങൾ ചുമത്തി അദ്ദേഹത്തെ പലതവണ ജയിലിൽ അടച്ചിട്ടുണ്ട്

കൃഷിഭൂമികൾ റോഡുകൾ പാലുങ്ങൾ വന്യജീവി പാർക്കുകൾ എന്നിവയ്ക്ക് വെളളപ്പൊക്കത്തിൽ നാശനഷ്ടമുണ്ടായി രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ സജ്ീവമായി തുടരുന്നു